തമിഴ്നാട്ടിൽ മാമല്ലപുരത്ത് രണ്ടാമത് അനൌദ്യോഗിക ഉച്ചകോടിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങും പങ്കെടുക്കും

തടവിലായിരുന്ന മൂന്ന് രാഷ്ട്രീയ നേതാക്കളെ ജമ്മു കശ്മീർ ന് ഭരണകൂടം മോചിപ്പിച്ചു

ലക്നൌവിൽ ആരംഭിക്കും

ഇന്ത്യയുടെ മഞ്ജു റാണിയും സെമിഫൈനലിൽ

തമിഴ്നാട്ടിൽ മാമല്ലപുരത്ത് രണ്ടാമത് അനൌദ്യോഗിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ പുരാതന കാലം മുതൽ തുടരുന്ന സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നതിനും വൈവിദ്ധ്യം ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് ഉച്ചകോടിയ്ക്കായി മാമല്ലപുരം തെരഞ്ഞെടുത്ത് ഉച്ചകോടിയ്ക്കായി പൈതൃക നഗരമായ മാമല്ലപുരം ഒരുങ്ങിക്കഴിഞ്ഞു കനത്ത സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് വിമാനത്താവളവും പരിസരപ്രദേശങ്ങളും ഇരുരാജ്യങ്ങളുടെയും ദേശീയപതാകകളും കുലവാഴകളും പൂക്കളും കൊണ്ട് പരമ്പരാഗതമായ രീതിയിൽ അലങ്കരിച്ചിട്ടുള്ളതായി ആകാശവാണി ലേഖകൻ അറിയിക്കുന്നു

കൂടുതൽ വിവരങ്ങളുമായി ശ്രോപ്പകുമാർ

സംസ്ഥാനങ്ങളിലെ ജി

ടീ കമ്മീഷണർമാരും കേന്ദ്രഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് സമിതി നികുതി വരുമാനത്തിലെ കുറവ് വേഗത്തിൽ കണ്ടെത്താനും അതിനുള്ള പരിഹാരമാർഗ്ഗങ്ങൾ അടിയന്തരമായി സമർപ്പിക്കാനും സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ടി നിയമത്തിൽ വരുത്തേണ്ട കാലാനുസൃതമായ മാറ്റങ്ങളെ സംബന്ധിച്ചും സമിതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം

ടി വരുമാനത്തിൽ ഉണ്ടായ കുറവ് പരിഗണിച്ചാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തല സമിതി രൂപവൽക്കരിച്ചത്

യവാർമിർ നൂർ മുഹമ്മദ് ഷൊയേബ് ലോണേ എന്നിവരെയാണ് മോചിപ്പിച്ചത് യവാർമിർ റാഫിയാബാദ് നിയമസഭാ സീറ്റിൽ നിന്നുള്ള മുൻ പി ഡി

ഷൊയേബ് ലോണേ വടക്കൻ കശ്മീരിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു നൂർ മുഹമ്മദ് ശ്രീനഗർ നഗരത്തിലെ ബാട്ട്മാലൂ പ്രശ്നബാധിത മേഖലയിലെ നാഷണൽ കോൺഫറൻസ് പ്രവർത്തകനുമാണ്

ബി ഐ മുംബൈ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു

ബി ഐ കേസുകൾക്കായുള്ള പ്രത്യേക ജഡ്ജി വി

സ്വന്ത്പു കുറ്റം മറയ്ക്കാൻ ആദ്യ എഫ് ഐ ആറിന് മുമ്പ് തന്നെ ചോക്സി ക്ട്ജുക്ക് വിട്ടതായി സി ബി ഐ

രാജ്യം വിട്ടിട്ടുശേഷം ആന്റിഗ്വ പൌരത്വം സ്വീകരിച്ച ചോക്സി ജാമ്യമില്ലാ വാദ്യങ്ട് നട്പ്പിലാക്കുന്നത് തടയാനാണ് ശ്രമിച്ചതെന്ന് സി ബി ഐ

ഈ വർഷം ആഗസ്റ്റ് രണ്ടിനാണ് നിയന്ത്രണമേർപ്പെടുത്തിയത് തീരുമാനം കാശ്മീർ സന്ദർശിക്കുന്ന വിനോദ സഞ്ചാരികൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകും

മഞ്ഞുകാലം ആരംഭിക്കുന്നതിന് മുമ്പ് പരീക്ഷകളെല്ലാം നടത്താനാണ് സ്കൂൾ വിദ്യാഭ്യാസ ബോർഡിനോടും കോളേജ് യൂണിവേഴ്സിറ്റി അധികൃതരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്

അടുത്ത മാസം നാലിന് ബാങ്കോക്കിൽ നടക്കാനിരിക്കുന്ന മൂന്നാമത് ഉന്നതതല ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള മന്ത്രിതല സമ്മേളനത്തിന്റെ അവസാനവട്ട യോഗമാണ് ഇന്ന് നടക്കുന്നത് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തോളം ശാസ്ത്ര ലേഖകർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദിയിലെ ശാസ്ത്രരചനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം

കോം എന്ന വെബ്സൈറ്റും പുറത്തിറക്കിയിട്ടുണ്ട്

നവജാത ശിശുമരണവും പ്രസവാനന്ത്രിമുള്ള മരണങ്ങളും കുറയ്ക്കുക ഗർഭിണികൾക്കും നവജാത് ശ്രിശ്രുക്കൾക്കും മികച്ച പരിരക്ഷ ഉറപ്പു വരുത്തുകയുമാണ് പദ്ധതിയുട്ടെ ലക്ഷ്യം

തീരുമാനം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് കൂടിക്കാഴ്ചയ്ക്കിടെ ശ്രീ

കശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഗവൺമെന്റിന്റെ ദൃഡനിശ്ചയത്തിൽ അസ്വസ്ഥരായ ചിലരിൽ നിന്ന് ഉണ്ടാകുന്ന സ്ഥാപിത നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം സംഘാംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി

മഹാരാഷ്ട്രയിലും കർണാടകത്തിലും കനത്ത മഴ വിതരണത്തെ ബാധിച്ചതായും പത്ത് ദിവസത്തിനുള്ളിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകുമെന്നും ഉപഭോക്തൃകാരൃ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കാർഷികമന്ത്രാലയ പ്രതിനിധികൾ പറഞ്ഞു തക്കാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി സഫാൽ എന്ന പച്ചക്കറി പഴവർഗ്ഗ മൊത്ത വ്യാപാര ശൃംഖല ഡൽഹിയിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ടൊമാറ്റോ പ്യൂരി വിൽക്കും

സുപ്രീം കോടതി ജഡ്ജിയ്യായി സ്ഥാനക്കയറ്റം ലഭിച്ച ജസ്റ്റിസ് ഋഷികേശ് റോയി സ്ഥാനമൊഴിഞ്ഞതിന്റെ തുടർന്നാണ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം

ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം ജോളിയെ വടകര പോലീസ് സ്റ്റേഷനിലെ വനിതാ സെല്ലിലേക്ക് മാറ്റി

അന്വേഷണത്തിൽ നിരവധി വിവരങ്ങൾ ലഭിച്ചതായും അവ വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നും റൂറൽ എസ് പി പറഞ്ഞു

ആറ് തവണ ചാമ്പ്യനായ എം സി

ഇതോടെ ഏഴ് ലോകചാമ്പ്യൻഷിപ്പ് മെഡലുമായി ക്യൂബയുടെ പുരുഷ ബോക്സിങ് ഇതിഹാസ താരം ഫെലിക്സ് സാവോണിന്റെ റെക്കോഡിനെ മൂന്നാം സീഡഡ് താരമായ മേരികോം മറി കടന്നു ലോക ബോക്സിങ്ങ് ചാമ്പ്യൻഷിപ്പിൽ എട്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരമാണ് മേരികോം

ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ തുടർച്ചയായ രണ്ടാം സെഞ്ചറിയാണ് മായങ്ക് നേടിയത്

മത്സരം രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കും